വിജയകരമായി പ്രവേശിച്ചെന്ന് ഐ

വയനാട് പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലെർട്ട്

സ്വാതന്ത്രൃദിന ആഘോഷങ്ങൾ സുഗമ്മാർയി നടത്തുന്നതിനുള്ള എല്പാവിധ സജ്ജീകരണങ്ങളും നടത്തിയതായി അധികൃതർ അറിയിച്ചു ജമ്മു കശ്മീരിലെ എല്ലാ ജില്ലകളിലും ഇന്നലെ നടത്തിയ സ്വാതന്ത്ര്യദിന ആഘോഷ പരിശീലനങ്ങളുട്ടെ അവ്വലോകനവും ഗവർണ്ണർ നടത്തി

രാജ്ഭവനിൽ ഇന്നലെ വൈകിട്ട് നടന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷ ക്രമസമാധാനം അടിസ്ഥാന അവശ്യ സേവനങ്ങൾ എന്നിവയുടെ സ്ഥിതിഗതികളും ഗവർണ്ണർ വിലയിരുത്തി യാതൊരു തടസ്സവും കൂടാതെ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പു വരുത്തുമെന്നും ഗവർണ്ണർ അറിയിച്ചു

പ്രാദേശിക തലത്തിൽ അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ദ്വരികയാണെന്നും നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങൾ കുറച്ചിട്ടുണ്ടെന്നും ജമ്മു കശ്മീർ ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ പറഞ്ഞു

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും രാത്രി ഏഴ് മണിക്ക് പരിപാടി പ്രക്ഷേപണം ചെയ്യും ആകാശവാണിയുടെ എഫ് എം ചാനലുകൾക്കു പുറമേ എഫ് എം ഗോൾഡ് എഫ് എം

ആകാശവാണി വാർത്തകളുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ന്യൂസ് ഓൺ എയർ ഒഫീഷ്യലിലും പരിപാടി ലഭ്യമാകും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ രാത്രി എട്ട് മണിക്ക് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

ഇത് രാജധാനി എഫ് എം റെയിൻബോ എഫ് എം ഗോൾഡ് ചാനലുകളിൽ കേൾക്കാം ആകാശവാണിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും

സംസ്ഥാർണത്തിന്റെ ശക്തിയും സാധൃതകളും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാങ്ങ് നിക്ഷേപ സംഗമം വഴിയൊരുക്കുമെന്നും ജമ്മു കശ്മീർ വ്യവസായ സെക്രട്ടിട്ടി ്ന്വീൻ ചൌധരി പറഞ്ഞു കശ്മീരിൽ നിക്ഷേപം നടത്തുന്നതിന് ഉണ്ട്ടായിരുന്ന അനിശ്ചിതത്വും ഭയവും ദൂരീകരിക്കുന്നതിന് നിക്ഷേപ് സ്റ്റ്ഗമത്തിലൂടെ സാധിക്കുമെന്നും ശ്രീ ചൌധരി കൂട്ടിച്ചേർത്തു

കഴിഞ്ഞ ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് ഈ വർഷം ഏപ്രിലിലായിരുന്നു പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയത് തെലങ്കാന ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ പരീക്ഷയിൽ മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭവും സംഘടിപ്പിച്ചിരുന്നു

കുറഞ്ഞ വൈദ്യുതി ഉപയോഗവും കൂടുതൽ കാര്യക്ഷമതയുമാണ് എൽ

വൈവിദ്ധ്യമായ നിറങ്ങളിൽ കമ്പ്യൂട്ടർ നിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രൌഢി കൂടുതൽ വർദ്ധിപ്പിക്കും പാർലമെന്റിന്റെ ഗാംഭീരൃം വർണ്ണാഭമായി വർഷം മുഴുവനും തുടരും

വയനാട്ട് മേപ്പാടി പുത്തുമല ദുരന്ത സ്ഥലത്ത് മണ്ണിന് അടിയിൽപ്പെട്ടവർക്കായുള്ള തീർച്ചിലിന് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തി

തൃശൂർ വയനാട് കോട്ടയം മലപ്പുറം കോഴിക്കോട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്

സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തടയാൻ മുൻകരുതൽ എടുക്കണമെന്ന് മന്ത്രി കെ

പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട ഒന്നുമുതൽ പന്ത്രണ്ടാം ക്ലാസുവരെയുള്ള കുട്ടികൾ പുതിയ പാഠപുസ്തകങ്ങൾ നൽകും

മഴക്കെടുതി ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിൽ നിന്ന് തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ ഈടാക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒഴിവാക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാർത്താ വിനിമയ സംവിധാനങ്ങളോടുകൂടിയുള്ള പ്രത്യേക മണ്ണിടിച്ചിൽ പ്രളയ ദുരിതാശ്ചാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും ശ്രീ

ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു കർമ്മ് പദ്ധതിയും ദീർഘകാല തന്ത്രങ്ങളും വികസിപ്പിക്കണമെന്നും ശ്രീ ർഷ്ട്രൂൽഗാന്ധി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു

വിലക്കയറ്റ നിരക്ക് ആർ

ഐ നിശ്ചയിച്ചിട്ടുള്ള നാല് ശതമാനം എന്ന ഉയർന്ന പരിധിയിൽ നിലനിർത്താൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ബി ഐ യ്ക്ക് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന് തുല്യമായ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു ന്യൂഡൽഹിയിൽ ഡി പി കോഹ്ലി അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

ബി ഐ രാജ്യത്തെ മുഖ്യ ഫെഡറൽ അന്വേഷണ ഏജൻസിയാണെന്നും അഞ്ച് ദശാബ്ദത്തിലേറെ കാലമായി അഭിമാനകരവും മേന്മയേറിയതുമായ സേവനങ്ങളാണ് സി ബി ഐ രാജ്യത്തിന് കാഴ്ചവച്ചത് എന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു

ആകാശവാണി കളിയുടെ ദൃക്സാക്ഷി വിവരണം തൽസമയം പ്രക്ഷേപണം ചെയ്യും

റഷ്യൻ ഒളിമ്പിക് ജേതാവ് റസ്ലൻ അൽബേഗോവ് വനിത്ര്മുൻ ലോക ചാമ്പ്യൻ ടിമാ ടുരിയേവാ എന്നീ താരങ്ങൾ സസ്പെന്റ് ചെയ്യപ്പെട്ടിട്ടിരിൽ ഉൾപ്പെടും

വടക്കൻ കൊൽക്കത്തയിൽ ബാഗ് ബസാറിലെ ഗൌഡിയ മിഷൺ നിർമ്മിച്ച ചൈതനൃ മഹാപ്രഭു മൃൂസിയം മുഖൃമന്ത്രി മമതാ ബാനർജി ഉദ്ഘാടനം ചെയ്തു